പ്രദേശത്ത് പാകിസ്ഥാനി സേന ഇന്ന് കനത്ത മോർട്ടാർ ഷെല്ലിംഗ് നടത്തി രണ്ട് ബി

എഫ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു

ഷോപ്പിയാനിൽ നിന്നാണ് പാക് തീവ്രവാദികൾക്ക് സഹായം ചെയ്തതിന് താരിഖ് അഹമ്മദ് ദാറിനെ അറസ്റ്റ് ചെയ്തത് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയ്ഷെ ഇ മൊഹമ്മദ് സംഘടനയാണെന്ന് താരീഖ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി എൻ

കുപ്പ്വാരയിൽ നിന്ന് കേസിലെ മറ്റൊരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു

ഇന്ന് വെളുപ്പിനാണ് സംഭവം എന്ന് ബി എസ്

എഫ് പോസ്റ്റിനുനേരെ യാതൊരു പ്രകോപനവും വെടിയുതിർക്കുകയായിരുന്നു

എസ് എഫിന്റെ എ

യാദവ് കോൺസ്റ്റബിൾ വി

പാണ്ടെ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അവർ മരണമടഞ്ഞു

ഫലപ്രദമായി പ്രത്യാക്രമണം നടത്തുന്ന ബി

എഫ് പാകിസ്ഥാൻ സേനയ്ക്ക് നല്ല തോതിൽ നഷ്ടം വരുത്തിയിട്ടുണ്ട്

ശ്രീമതി സുഷമ സ്വരാജ് ഇന്ന് ദക്ഷിണാഫ്രിക്കയുടെ സമുന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ശ്രീമതി സ്വരാജ് നാളെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇബ്സാ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ട്വീറ്റ് ചെയ്തു മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുകയും അക്രമരാഹിത്യ തതചിന്തയ്ക്ക് രൂപം നല്കുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പൈതൃക സ്ഥാനമായ ഫീനിക്സ് സെറ്റിൽമെന്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും

ഈ ബന്ധം ഇരുരാജ്യങ്ങളുടെയും ചരിത്രത്തിലും ദക്ഷിണ ദക്ഷിണ സഹകരണത്തിന്റെ മൂല്യത്തിലും വേരൂന്നിയിട്ടുള്ളതാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹർഷ് വർദ്ധൻ വിദ്യാർത്ഥികളെട്ട് ആഹ്വാനം ചെയ്തു

എ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നശേഷം കാർഷികോൽപാദനത്തിൽ വൻ പുരോഗതിയുണ്ടായതായി കേന്ദ്ര കൃഷി മന്ത്രി രാധ മോഹൻ സിങ് പറഞ്ഞു കാർഷിക രംഗത്ത് പുതിയ നയങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കി

ബിഹാറിലെ മുസഫർ നഗറിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

എ സംസ്ഥാന പ്രസിഡന്റ് ഡോ രവിവാങ്കേക്കർ പറഞ്ഞു നിപ പ്രതിരോധത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളും ഏജൻസികളും സ്വീകരിച്ച നടപടികൾ അഭിനന്ദാർഹമാണെന്ന് അദ്ദേഹം പൊതുപരിപാടിയിൽ പറഞ്ഞു

വ്യാജസന്ദേശം നിർമ്മിച്ച് വാട്ട്സ് ആപ്പിലൂടെ പ്രചരിപ്പിച്ചവരെയാണ് അറസ്റ്റ് ചെയ്തത്

സിംഗപൂരിൽ സൂരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കവേ പ്രതിരോധ സെക്രട്ടറി ജിംമാറ്റിസാണ് ഇക്കാര്യം അറിയിച്ചത്

പ്രസിഡന്റ് ഡൊണൽഡ് ട്രംപും ഉത്തരകൊറിയൻ നേതാവ് കിം ജോംഗ് അൻ നും ആയുള്ള ഉച്ചകോടിയ്ക്ക് മുൻപുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ നടപ്പാക്കുന്നുയെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ഒ വൃത്തങ്ങൾ അറിയിച്ചു

ഇ

വിദ്യാഭ്യാസ അവകാശ ആക്ടിന്റെ ഭേദഗതി ബിൽ അടുത്ത മാസം പാർലമെന്റിന്റെ മേശപ്പുറത്തുവയ്ക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ചെങ്ങന്നൂരിൽ എസ്പിന്നും വിജയിച്ച സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയാണ് ആദ്യ ചടങ്ങ്

ബജറ്റിന്റെ ഭാഗ്നമായ ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും ഇ്റ്റ് സമ്മേളനത്തിൽ നടക്കും

പിറവൂർ തെക്കേതിൽ സുരേഷ് കുമാറാണ് മരിച്ചത്

രാവിലെ എട്ടുമണിയോടെ വീട്ടുമുറ്റത്തു നിൽക്കെ ഇടിമിന്നലേറ്റ് വീഴുകയായിരുന്നു ജില്ലയിൽ കാലവർഷം ശക്തമാണ്

ഇന്ത്യയുടെ പൂജവസ്ട്രാക്കർ മൂന്ന് വിക്കറ്റ് നേടി

ഏഷ്യാകപ്പ് ആറ് തവണ കരസ്ഥമാക്കിയ ഇന്ത്യ നാളെ തായ്ലന്റുമായും ശനിയാഴ്ച പാകിസ്ഥാനുമായും ഏറ്റുമുട്ടും റൌണ്ട് റോബിൻ സ്റ്റേജിൽ മുന്നിൽ വരുന്ന രണ്ട് ടീമുകൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും

ലഘുവും എല്ലാവർക്കും ലഭിക്കാവുന്നതും വിശ്വസനീയവും ശുദ്ധവും പരിസ്ഥിതി സൌഹൃദ്യൂര്യും ആയ ഗതാഗതത്തിന് പ്രോത്സാഹനം നൽകാൻ അടുത്തിടെയ്ാണ് ഐക്യരാഷ്ട്രസഭ ബൈസിക്കിൾ ദിനമായി ജൂൺ ദ പ്രഖ്യാപിച്ചത്